ത പാലക്കാട്ടും കാസർകോട്ടും കോവിഡ് സ്ഥിരീകരിച്ച രണ്ടു പേർ മരിച്ചു

നോയിഡ കൊൽക്കത്ത മുംബൈ എന്നിവിടങ്ങളിലാണ് ലാബുകൾ കോവിഡ് നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സ ആരംഭിക്കാനും പരിശോധന കണ്ടെത്തൽ ചികിത്സ എന്ന നയം ആവിഷ്കരിച്ചിട്ടുണ്ട്

സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും പരിശോധനാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്രം ഇതിനകം ആവശ്യപ്പെട്ട് കഴിഞ്ഞു പുതിയ ലാബുകൾ സ്ഥാപിച്ചും നിലവിൽ പ്രവർത്തിക്കുന്നവയുടെ ശേഷി വർദ്ധിപ്പിച്ചും കോവിഡ് പരിശോധനാ സൌകര്യം മികവുറ്റതാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി

സ്വകാര്യ പങ്കാളിത്തതോടെ ഗവൺമെന്റ് ഏജൻസികൾ വാക്സിൻ വികസിപ്പിക്കാൻ ഊർജ്ജിത ശ്രമം തുടരുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിന്റെ മനുഷ്യരിലെ ആദ്യ ഘട്ട പരീക്ഷണം ഡൽഹി എയിംസിൽ ആരംഭിച്ചു ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലുമായി ചേർന്ന് ഹൈദരബാദിലെ ഭാരത് ബയോടെക് ആണ് വാക്സിൻ വികസിപ്പിച്ചത് രുമ രാജ്യത്ത് കോവിഡ് നിർണ്ണയ പരിശോധന റെക്കോർഡിലെത്തി

പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന കൊല്ലങ്കോട് സ്വദേശിനി മരിച്ചു

പ്രമേഹം അധികരിച്ചതാണ് മരണത്തിന് കാരണമായതെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു

രുമ പരിയാരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് പടന്നക്കാട് സ്വദേശിനിയും രാവിലെ മരിച്ചു

കടുത്ത പ്രമേഹത്തെത്തുടർന്ന് നബീസയെ നേരത്തെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നില വഷളായതിനെത്തുടർന്ന് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു രുമ കാസർകോട് ജില്ലയിൽ കോവിഡ് രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം ശക്തമാക്കി ഇന്ന് അർദ്ധരാത്രി മുതൽ മഞ്ചേശ്വരം കുമ്പള കാസർകോട് ഹോസ്ദുർഗ് നീലേശ്വരം പൊലീസ് സ്റ്റേഷൻ പരിധിയിൽ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു

പ്ലസ് വൺ പ്രവേശനമടക്കം സാഹചര്യത്തിലാണ് ജില്ലാ കൊറോണ കോർ കമ്മിറ്റി ഇക്കാര്യം തീരുമാനിച്ചത് രുമ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി കോവിഡ് സ്പെഷ്യൽ ആശുപത്രിയാക്കി മാറ്റുമെന്ന് മന്ത്രി എ

രണ്ട് ദിവസത്തിനകം ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കും കോഴിക്കോട് ജില്ലാതല കോവിഡ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ രോഗികളുടെ എണ്ണംകൂടുന്ന സാഹചര്യത്തിലാണ് നടപടി രുമ കോവിഡ് പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ജീവൻ രക്ഷിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ

തൊഴിൽ ലഭ്യമാക്കുന്നത് രണ്ടാമതായാണ് പരിഗണിക്കുകയെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യം പരിഗണിച്ച് വരികയാണെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു പുനർഗേഹം പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് നടപ്പിലാക്കിയെന്ന് അവർ വ്യക്തമാക്കി ദേശ കൊല്ലം ജില്ലയിലെ കോവിഡ് ക്ലസ്റ്റർ സോണുകളിൽ അതീവ ജാഗ്രത തുടരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

ചവറ പന്മന ശാസ്താംകോട്ട ഇരവിപുരം നെടുമ്പന കൊട്ടാരക്കര അഞ്ചൽ ഏരൂർ ഇടമുളയ്ക്കൽ തലച്ചിറ പൊഴിക്കര ആലപ്പാട് ഇളമാട് ചിതറ എന്നിവയാണ് ക്ലസ്റ്ററുകൾ ക്ലസ്റ്റർ സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകി സ്രവപരിശോധനയും ബോധവത്കരണവും തുടരുകയാണ്

കഞ്ചിക്കോട് വൊക്കേഷണൽ ഹയർ സെക്കണ്ടറി സ്കൂളിൽ പരീക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപികയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരുടെ മകൾക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു രേര കോഴിക്കോട്ട് സമ്പർക്കത്തിലൂടെ കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ചെക്യാട് ഗ്രാമ പഞ്ചായത്തിൽ തിങ്കളാഴ്ച കൂടുതൽ പരിശോധനകൾ നടത്തും നിരീക്ഷണത്തിലുള്ളവരേയും സമ്പർക്കപട്ടികയിൽ ഉള്ളവരെയും പരിശോധിക്കുമെന്ന് അധിക്വതർ പറഞ്ഞു രുമ തമിഴ്നാട്ടിലെ കോവിഡ് തീവ്രബാധിത മേഖലകളിൽ നിന്നും തൊഴിലാളികൾ ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിലേക്ക് കാൽനടയായി ജോലിക്കെത്തി മടങ്ങുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ശക്തമാക്കി

ജില്ലാ പ്രതിനിധി ആർ രവികുമാർ നൽകുന്ന റിപ്പോർട്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ന്യൂസ് ഓൺ എയർ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും യുട്യൂബിലും പരിപാടി ലഭ്യമാകും പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ ആകാശവാണി കേരള നിലയങ്ങൾ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും വൈകിട്ട് എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം

കോവിഡ് സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ട്

വിശദാംശങ്ങൾ നൽകുന്നത് ജില്ലയിൽ നിന്നും അരുൺ വിൻസന്റ്

ഇന്ന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്